ആരംഭിച്ചു

പിണറായി വിജയ്നും കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് ഇന്ന് നാട്ടിന് സമർപ്പിക്കും

തീവ്രവാദികളുമായി നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ കാർട്ടർ ഫൈനലിൽ

അവസാന് ഗ്രൂപ്പ് മത്സരത്തിൽ കാനഡയെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്

പത്ത് ജില്ലകളിലാണ് ഇന്ന് തെരെഞ്ഞെടുപ്പ് നടക്കുന്നത്

ബുധാനാഴ്ചയാണ് വോട്ടെണ്ണൽ

ജെ

സംസ്ഥാന ഉപാധ്യ ക്ഷൻ സുദെർശൻ ഗ്ലൂപ്തയാണ് അവകാശപ്പെട്ടത് ഭോപ്പാലിൽ നടന്ന പാർട്ടിയോഗത്തിനുശേഷനം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറം എന്നിവിടങ്ങളിൽ മറ്റെന്നാളാണ് വോട്ടെണ്ണൽ നടക്കു ക

ഗോരഖ്പൂരിൽ നാളെ നടക്കുന്ന മഹാറാണാപ്രതാപ് എജ്യൂക്കേഷൻ കൌൺസിൽ പരിപാടിയിൽ രാഷ്ട്രപതി സംബന്ധിക്കും

ദ റിപ്പബ്ലിക്കൻ എതിനിക് ലോക തന്ത് കി സ്വർ എന്നീ രണ്ട് പുസ്തകങ്ങൾ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവാണ് പ്രകാശനം ചെയ്തത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നും അടിച്ചമർത്തപ്പെട്ടവരോട് അനുകമ്പ പുലർത്തി വരുന്ന നേതാവാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാംത്ത്നെ അനുകമ്പ പരസ്പര ബഹുമാനം ഉദാരമനസ്കൃതു്ടങ്ങിയ സന്ദേശങ്ങൾ കാണാനാകുമെന്ന് ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി പ്രിജ്യനും കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് ഇന്ന് രാവിലെ ൃ്

ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ ഡിപ്പാർച്ചർ ഹാളിനു മുന്നിൽ മന്ത്രി ഇ

ജയരാജന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും വി ശിഷ്ടാതിഥികളും ചേർന്ന് സ്വീകരിക്കും

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ജിയോതെർമൽ ഊർജ്ജം മത്സ്യബന്ധന്റും വിവര സാങ്കേതിക വിദ്യ ഫാർമസ്യൂട്ടിക്കൽസ് വിനോദ്യസ്ഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ബന്ധം ഉറപ്പാക്കാൻ ഇരു രാഷ്ട്രങ്ങൾക്കും കഴിയുമെന്നും ഇരുവരും പറഞ്ഞു രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ തുടക്കം കുറിച്ച നേരിട്ടുള്ള വിമാന സർവ്വീസുകൾ ഇന്ത്യൂര്യഐസ്ലൻഡ് വാണിജ്യ സാസ്കാരിക സഹകരണത്തിന് ഊർജ്ജം പകരുമെന്ന് ഇരുവരും പറഞ്ഞതായി വിദേശകാര്യമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിവിധ കേന്ദ്രമന്ത്രിമാരുമായും ഐസ്ലൻഡ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി

എട്ടു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ധെൻഗനൽ ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നതിനെതുടർന്നാണ് ഉത്തരവ് സംഭവത്തെ ബന്ധപ്പെട്ട അധികൃതർ തങ്ങളുടെ ഉത്തരവാദിത്തമായി കണ്ട് ഉടൻ അന്വേഷണമാരംഭിക്കണമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് അയച്ച കത്തിൽ ശ്രീമതി

ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനോട് സംസ്ഥാനത്തെ എല്ലാ അഭയകേന്ദ്രങ്ങളിലും പരിശോധന നടത്താനും മന്ത്രി ആവശ്യപ്പെട്ടു

അരുണാചൽ പ്രദേശ് മുന്ത്രീ നിബാം റെബിയ സമ്മേളനം ഉദ്ഘാ ടനം ചെയ്തു രാജൃത്ത് ൂവിവിധ ശാസ്ത്ര സ്ഥാപനങ്ങളുമായി അരുണാചൽ പ്രദേശ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതികവിദ്യ കൌൺസിൽ സഹകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലകൾക്ക് പ്രോത്സാ ഹനം നൽകുന്നതിൽ കൌൺസിൽ മുഖ്യ പങ്കു വഹിക്കു ന്നതായും അദ്ദേഹം പറഞ്ഞു ഇറ്റാനഗറിൽ സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശ് ശാസ്ത്ര കേന്ദ്രത്തിലെ ബഹിരാകാശ കേന്ദ്രവും ഇന്നവേഷൻ ഹബ്ബും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ഇവരെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു

ഇവരെ മിലിട്ടറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ തീവ്രവാദികളുടെ സാന്നിധൃം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് സേന ഇവിടെ തെരച്ചിൽ ആരംഭിച്ചത്

എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്കുള്ള പങ്ക് പാക്കിസ്ഥാൻ സമ്മതി ക്കുന്നത് സന്തുഷ്ടി പകരുന്ന കാര്യമാണെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു മുംബൈ ആക്രമണത്തെപ്പറ്റി പാക്കിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെപ്പറ്റി പ്രതികരിക്കു കയായിരുന്നു ശ്രീ ബിപിൻ റാവത്ത്

അവസാന മിനിട്ടുകളിലെ മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ക്വാർട്ടർ ഉറപ്പാക്കിത്

വനവ്ൽക്കൂരണം ജൈവ വൈവിധ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിനിുള്ള പുതിയ രീതികൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി സാങ്കേതിക വിദ്യ കളെ പ്രവർത്തന മാതൃക്യിലാക്കുന്നതിന് പുതിയ പ്രവർത്തന സംഘം രൂപീകരിക്കുമെ്ന്ന് സമാപന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് സെക്രട്ടറി യു

സിംങ് അറിയിച്ചു